അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ്പോൾ പ്രവചനം സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്

റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സ് വിജയത്തിലേക്ക്

സംസ്ഥാനത്ത് ഇന്നലെ അഞ്ചിടത്ത് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെ ടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു കനത്ത മഴയും ഗതാഗത തടസ്സവു മാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ

എക്സിറ്റ് പോളുകൾ യു ഡി എഫിന് മൂന്നു സീറ്റും എൽ ഡി എഫിന് രണ്ട് സീറ്റുമാണ് പ്രവചിക്കു ന്നത് വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ

മഹാരാഷ്ട്രയിൽ ബി ജെ പിയും സഖ്യകക്ഷിയായ ശിവസേനയും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുമെന്നാണ് വിവിധ ഏജൻസികളുടെ കണ്ടെത്തൽ

യതോടെ സംസ്ഥാനത്ത് മൂന്നോ നാലോ ദിവസം കൂടി ശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും അതീവ ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അഞ്ച് ജില്ല കളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് കോഴിക്കോട് വയ നാട് കണ്ണൂർ കാസർകോട് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരിക്കും നാളെ കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് ആയിരിക്കും വരുന്ന രണ്ടു ദിവസങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു കനത്ത മഴ കണക്കിലെടുത്ത് ഇന്ന് തൃശൂർ എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി

സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി വെച്ചു

മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓപ്പ റേഷൻ ബ്രേക്ക് ത്രൂ എന്ന പേരിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന ജോലികൾ ആരംഭിച്ചത് ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിൽ മണ്ണും പാറയും ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പാലക്കാട് അട്ടപ്പാടിയിലും മണ്ണിടിച്ചിൽമൂലം ഗതാഗതത്തിന് തടസ്സം നേരിട്ടു

പാംബ്ള കുണ്ട്ള ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തി പാലക്കാട് ജില്ലയിലെ ആറ് ഡാമുകളുടെ ഷട്ടറുകളും തുറന്നു വിട്ടു ചുള്ളിയാർ ഡാമിന്റെ ഷട്ടർ ഇന്ന് തുറന്നേക്കും അട്ടപ്പാടി അഗളി യിൽ ഒരു ദുരിതാശാസ ക്യാമ്പ് തുടങ്ങി മലപ്പുറം അതിർത്തി വനമേഖല യിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്നു

ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കുട്ടനാട്ടിലെ ആറ് പാടശേഖരങ്ങളിൽ മടിവീണ് വൻ കൃഷി നാശമുണ്ടാ യി

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിലും മഴ ശക്തമായിരിക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര സാഹചര്യം നേരിടാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാകാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറിയുടെ അധൃക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം സംസ്ഥാനത്തെ മഴ സാഹചരൃം വിലയിരുത്തി

മുമ്പ് ദുരന്തങ്ങളുണ്ടായ മേഖലകളിൽ താമ സിക്കു ന്ന വരെ സുരക്ഷിത സ്ഥലങ്ങളി ലേക്ക് മാറ്റാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കാനും നിർദ്ദേശമുണ്ട്

കോഴിക്കോട്ട് സേവനാവകാശ ചട്ടങ്ങൾ സംബന്ധിച്ച നിയമ സഭാ സബോർഡിനേറ്റ് കമ്മിറ്റി യോഗവും മാറ്റിയിട്ടുണ്ട്

ഗുരുവായൂർ പുനലൂർ ഗുരുവായൂർ ഷൊർണ്ണൂർ എറണാകു ളം കായംകുളം എറണാകുളം കൊല്ലം കോട്ടയം എറണാകുളം ആല പ്പുഴ പാസഞ്ചറുകളും റദ്ദാക്കി ദീർഘദൂര ട്രെയിനുകൾ വൈകിയായി രിക്കും സർവീസ് നടത്തുക

യുടെ രണ്ടാം ഘട്ടം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു

ശൈലജ ഫ്ളാഗ് ഓഫ് ചെയ്തു മിനിറ്റുകൾക്കകം അപകട സ്ഥലത്ത് ആംബുലൻസുകൾ എത്തി ച്ചേരാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണമെന്ന് മന്ത്രി പറഞ്ഞു

വെള്ളിയാഴ്ച മുതൽ ആംബുലൻസുകൾ സേവന രംഗത്ത് ലഭ്യമാകും ് സാംസ്കാരിക വകുപ്പ് പാലക്കാട്ട് കണ്ണമ്പ്രയിൽ നിർമ്മിച്ച എം

രാമനാഥൻ സ്മാരക സാംസ്കാരിക നിലയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

നായർ നാടകോത്സവവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു

ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ജംഷഡ്പൂർ എഫ് സി ഒഡീഷ എഫ് സിയുമായി ഏറ്റുമുട്ടും

രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയാറാക്കി

തത്സമയ വായു ഗുണനിലവാര പരിശോധനാ സംവിധാനം മന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

നിർമ്മാണ കമ്പനി പൂർത്തീകരിച്ച ഫ്ളാറ്റുകൾ കോഴിക്കോട് കോർപറേഷന് കൈമാറി

കമ്മീഷൻ പ്രസിഡന്റ് ടി

അഗർവാൾ അംഗം എം ശ്രീഷ എന്നിവർ പുല്ലേപ്പടി ജില്ലാ ഉപഭോക്തൃ തർക്ക പരി ഹാര ഫോറം കോർട്ട് ഹാളിലെ സിറ്റിംഗിൽ പങ്കെടുക്കും

കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയും സംഘടിപ്പിക്കുന്ന നിയമ ഗ്രന്ഥങ്ങളുടെ പ്രദർശന വില്പന മേള ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും ഹൈക്കോടതി സമുച്ചയത്തിലാണ് രണ്ടു ദിവസത്തെ പരിപാടി

അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട്ട് ആരംഭിക്കും

ആക്രമിക്ക പ്പെടാൻ പാടില്ലെന്ന പൊതുബോധം പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് വനിതാ കമ്മീഷൻ ചെയർ പേഴ്സൺ എം

സ്ത്രീകളെ ആക്രമിക്കുന്നതിൽ മതമോ സമുദായമോ സാമ്പത്തികമോ വിഷയമല്ലെന്നും സ്ത്രീ സ്വകാര്യ സ്വത്താണെന്ന പുരുഷ മേധാവിത്വമാണ് ഇതിനു പിന്നി ലെന്നും അവർ കല്പറ്റയിൽ പറഞ്ഞു വനിതാ കമ്മീഷൻ മെഗാ അദാല ത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഐ ടി ഐയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി